ഗഡ്കരി ഇന്ന് ലോക്സ്ട്യിൽ അവതരിപ്പിച്ചു

വിതരണം ചെയ്തതായി കേന്ദ്രസർക്കാർ

പുരോഗമിക്കുന്നു

സ്ഥാനാർത്ഥികളും മുതിർന്ന നേതാക്കളും പ്രചാരണ പരിപാടികളിൽ സജീവമാണ് എൽഡിഎഫ് യുഡിഎഫ് എൻ

എ മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് കൺവൻഷനുകൾ സംസ്ഥാനമൊട്ടാകെ പുരോഗമിക്കുകയാണ്

ഡി എഫ് യു ഡി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരു സംസ്ഥാനങ്ങളിലും ഇന്ന് പ്രചാരണത്തിനെത്തി

ബിജെപി അധികാരത്തിൽ വന്നാൽ പശ്ചിമബം ഗാളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് പുരുലിയ യിൽ നടന്ന് യോഗത്തിൽ പ്രധാനമന്ത്രി ഉറപ്പു നൽകി അടുത്ത് കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരം വികസനം അസമിൽ നടപ്പാക്കു മെന്നും അദ്ദേഹം അറിയിച്ചു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സംസ്ഥാനത്ത് മൂന്ന് തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു സിപിഎം സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത് മിശ്ര ഐഎസ്എഫ് നേതാവ് അബ്ബാസ് സിദ്ദിഖി തുടങ്ങിയ പ്രമുഖ നേതാ ക്കളും പ്രചാരണ പരിപാടികളിൽ സജീവമാണ് അസം തെരഞ്ഞെ ടുപ്പിൽ മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ ബോഡോലാന്റ് പാർട്ടി നേതാവ് ലോറൻസ് ഇസ്തറി തുടങ്ങിയവർ പത്രിക സമർപ്പിച്ചു

ഇൻഷുറൻസ് കമ്പനികളുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഭേദഗതിയിലൂടെ എടുത്തുമാറ്റും

ഇതേത്തുടർന്ന് സഭ പലതവണ നിർത്തിവയ്ക്കേണ്ടതായി വന്നു ബിൽ പാർലമെന്ററി സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നായിരുന്നു് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ഇൻഷുറൻസ് കമ്പനികളിൽ വിദേശികൾക്ക് ഉടമസ്ഥാവകാശം അനുവദിച്ചാൽ രാജ്യമെങ്ങനെ സ്വയംപര്യാപ്തമാകുമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ സഭയിൽ ചോദ്യം ഉന്നയിച്ചു

എം കെ തൃണമൂൽ എൻ സി പി അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളും ഭേദഗതിക്കെതിരെ രംഗത്തുവന്നു

സി സ്വകാര്യവത്കരിക്കുന്നില്ലെന്നും ഓഹരി വിറ്റഴിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സർക്കാർ കേന്ദ്ര ഉപധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കവേ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂറാണ് ഇക്കാര്യം അറിയിച്ചത് കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങൾക്കുവേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി ക്ഷേമ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ വിലക്കയറ്റം തടയാൻ കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് തൃണമൂൽ എം

വിലക്കയറ്റം തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ശിവസേനാംഗം വിനായക് റാവത്തും ആവശ്യമുന്നയിച്ചു

ഇന്ത്യയിൽ ബിസിനസ്സ് പ്ലിച്ച്യാൻ ഇവർക്കും അവസരമുണ്ടെന്നും അഭിപ്രായവൃത്യാസങ്ങളെ് സർക്കാർ സ്വാഗതം ചെയ്യുന്നതായും മന്ത്രി വൃക്തമാക്കി

കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെയാണ് വിവിധ വിദേശ രാജ്യങ്ങളിൽ ഇവ സജ്ജീകരിക്കുന്നത് രാജ്യസഭയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി സ്മൃതി ഇറാനിയാണ് ഇക്കാരൃം അറിയിച്ചത് കുട്ടികൾക്ക് മാനസിക സഹായം നൽകുന്നതിനായി നിംഹാൻസുമായി സഹകരിച്ച് സംവാദ് പദ്ധതി ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു

ക്ഷമതയില്ലാത്തതും മലീ നീകരണം ഉണ്ടാക്കുന്നതുമായ വാഹനങ്ങൾ നിരത്തിൽ നിന്നും ഒഴി വാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ സ്ക്രാപ്പിങ്ങ് നയം തയ്യാറാ ക്കിയിരിക്കുന്നത് വാഹന മേഖലയിൽ വലിയ മാറ്റങ്ങൾ നയം സൃഷ്ടിക്കുമെന്ന് ശ്രീ

പഴയ വാഹനങ്ങൾ സ്ക്രാപ് ചെയ്യു മ്പോൾ ഉടമകൾക്ക് പാരിതോഷികം നൽകുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചു

വാഹ നങ്ങളുടെ നിർമാണ ചെലവും അറ്റകുറ്റച്ചെലവും കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും നയം വഴി തുറക്കും

റെസ്റ്റാറന്റ് പെട്രോൾ സ്റ്റേഷൻ റിപ്പയർ കേന്ദ്രം മെഡിക്കൽ ക്സിനിക് യാത്രക്കാർക്കും ഡ്രൈവർമാർക്കുമുള്ള വിശ്രമ സംവി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷ്ട്രനുകൾ എന്നിവ ഓരോ വഴി ധാനം യോര കേന്ദ്രത്തിലും സജ്ജീകരിക്കും

സംസ്ഥാനത്ത് ഇന്ന് പുതുതായി ഹോട്സ്പോട്ടുകളില്ല

കോവിഡ് പരിശോദ്ധന ബസ് സ്റ്റാന്റുകൾ റയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവ്ളങ്ങൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ച് നടത്താനും നടപടികൾ സ്വീകൃതിച്ചു

സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടാണ് ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കമ്മീഷൻ നോട്ടീസ് ് നൽകിയത് വീട്ടുടമസ്ഥന്റെയും ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ അനാസ്ഥ ഇതിനു പിന്നിലുണ്ടെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു

ടോസ് നേടിയ ഇംഗ്ലണ്ട് ഇന്ത്യയെ ബാറ്റിങ്ങിന് അയയ്ക്കുകയായിരുന്നു

അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത്